പാമ്പുകടിയേറ്റു മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപ്പക്ഷ്മൃനേതാവ്

രാജ്യത്തെ കർഷകരുട്ടെ താൽപ്പരൃം ബലികൊടുത്തുള്ള ന് ഒരു കരാറിലും ക്ട്രേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി

മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്തു കേരളത്തിൽ ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് എൻസിപി കേരള ഘടകം

ഇത്തരം സംഭവം കേരളത്തിലെ സ്കൂളുകളിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും നിർദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ച ഷഹ്ലയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ബത്തേരിയിൽ വെച്ച് മന്ത്രി സി രവീന്ദ്രനാഥിനെ യുവമോർച്ച പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കൽപ്പറ്റയിൽ വച്ച് എം എസ് ഫ് പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു

് സുൽത്താൻബത്തേരി സർവ്വജന സ്ക്കുൾ സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യാപകർക്കെതിരെ മൊഴി നൽകുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നവർക്കെതിരെ പോക്സോ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷനേതാവ് ആവശ്യപ്പെട്ടു

മൊയ്തീൻ കുട്ടികളുടെ സുരക്ഷക്കായി സംസ്ഥാന ഗവൺമെന്റ് കർശന നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി എ

മൊയ്തീൻ തൃശൂർ ടൌൺഹാളിൽ ബാലസൌഹൃദ ജില്ല വെബ്പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കുട്ടികളോടുള്ള വിവേചനവും അതിക്രമവും ഇല്ലാതാക്കാൻ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പങ്കാളിത്തം ഉറപ്പു വരുത്തും ബാലസൌഹൃദ പദ്ധതി നടപ്പിലാക്കുന്നതിൽ തൃശൂർ മറ്റു ജില്ലകൾക്ക് മാതൃകയാണ് കുട്ടികളുടെ ആവശൃങ്ങളറിഞ്ഞ് പ്രാവർത്തികമാക്കാനായി വകുപ്പ് തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും

മന്ത്രിമാരായ ഇ

വൃവസായം ടൂറിസം വിദ്യാഭ്യാസം ഫിഷറീസ് മേഖലകളിലെ സാമ്പത്തിക സാങ്കേതിക വിജ്ഞാന സഹകരണമാണ് ലക്ഷ്യം

ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് തുടങ്ങിയവരാണ് സംഘത്തിലുള്ള മറ്റുള്ളവർ ഗവർണർ സമ്മേളനം സംസ്ഥാന ഗവർണർമാരുടെയും ലഫ്റ്റനന്റ് ഗവർണർമാരുടെയും ദ്വിദിന സമ്മേളനം ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം

ലൈഫ് ഭവന പദ്ധതി ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഏർപ്പെത്തിയ മാനദണ്ഡങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പരിച്ചുരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു

മുരളീധരൻ രാജ്യത്തെ കർഷകരുടെ താൽപ്പര്യം ബലികൊടുത്തുള്ള ഒരു കരാറിലും കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടില്ലെന്നതിന്റെ തെളിവാണ് ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യഒപ്പ് വെയ്ക്കാത്തതെന്ന് വിദേശകാര്യ സഹമന്ത്രി ശ്രീ

ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് ശ്രീ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുന്നത്

എന്നാൽ ബിജെപി യെ പിന്തുണയ്ക്കാനും ഗവൺമെന്റിന്റെ ഭാഗമാകാനുമുള്ള അജിത്പവാറിന്റെ തീരുമാനം വൃക്തിപരമാണെന്നും പാർട്ടി തീരുമാനമല്ലെന്നും എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ വ്യക്തമാക്കി

് അജിത് പവാറിനെതിരെ നടപടിസ്വീകരിക്കണമെന്ന് എൻ ്രസി പ്പി ദേശീയ ജനറൽ സെക്രട്ടറി ടി

പാർട്ടി പിണറായി ഗവൺമെന്റിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് എൻസിപി സംസ്ഥാന പ്രസിഡന്റ് തോ്മസ് ചാണ്ടി വ്യക്തമാക്കി

ടി പി രാമകൃഷ്ണൻ സ്വകാര്യ സ്ഥാപനങ്ങളിലെ സ്ത്രീക്ളുടെ സുരക്ഷയും അന്തസും ഉറപ്പുവരുത്തുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റിന്റൂള്ളതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു ്സ്ത്രീതൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾ തടയുകയും ചെയ്യുന്നതു സംബന്ധിച്ച നിയമവ്യവസ്ഥകൾ സംസ്ഥാന സർക്കാർ ദുർബലപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു